പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്യും സോനാപെട്ടിലെ റെയിൽവേകോച്ച് പുനരുദ്ധാരണ യൂണിറ്റിനും പ്രധാനമന്ത്രി തറക്കല്പിടും

ശബരിമല വിഷയത്തിൽ റിവ്യു ഹർജികൾ ഉടൻ ന് പരിഗണിക്കില്ലെന്ന് സൂപ്പീം കോടതി

സോനാപെട്ടിൽ റെയിൽവേ കോച്ച് പുനരുദ്ധാരണ യൂണിറ്റിനും പ്രധാനമന്ത്രി സന്ദർശന വേളയിൽ തുടക്കം കുറിക്കും യൂണിറ്റ് നിലവിൽ വരുന്നതോടെ വടക്കൻ മേഖലയിലെ റെയിൽവേ കോച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വൻമുന്നേറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിസ്ഥിതി സൌഹൃദമായ കോച്ചുകളാണ് ഇവിടെ പുനർനിർമ്മിക്കുക

കൂടുതൽ വിവരങ്ങളുമായി സോഫിയി പ്ര രാഷ്ട്രീയ ബന്ധങ്ങൾ ത്രന്തപ്രമായ ഗവേഷണം കൃഷി പുനരുപയോഗ ഊർജ്ജം പ്രിമ്പരാഗത മരുന്നുകൾ ബഹിരാകാശ സാങ്കേതികവിദ്യ പ്രകൃതിദുരന്ത നിവാരണം സാംസ്കാരികം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ ഉടമ്പടികളിൽ ഒപ്പുവച്ചു പ്രതിരോധം വാണിജ്യം ഗവേഷണം ടൂറിസം ആരോഗ്യം വികസനം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണത്തിലൂടെ ഇരു രാജ്യങ്ങൾക്കും മികച്ച പുരോഗതി കൈവരിക്കാനാകുമെന്ന് ശ്രീ

അന്താരാഷ്ട്ര തലത്തിൽ ഭീഷണി ഉയർത്തുന്ന ഭീകരവാദവും ആക്രമണതീവ്രവാദവും തടയുന്നതിൽ ഇന്ത്യയും താജികിസ്ഥാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും രാഷ്ട്രപതി അറിയിച്ചു ഭീകരതയ്ക്കും മതതീവ്രവാദത്തിനെതിരെയുമുള്ള പോരാട്ടം പ്രത്യേക മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ളതല്ലെന്നും രാഷ്ട്രപതി പറഞ്ഞു ദുഷാൻബേയിലെ താജിക് നാഷണൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഇന്നലെ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് യുവാക്കളിൽ മതതീവ്രവാദം തടയുന്നതിൽ കുടുംബങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാനുണ്ടെന്ന് രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു മതതീവ്രവാദം ചെറുക്കുന്നതിൽ ആധുനിക സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താജകിസ്ഥാൻ സന്ദർശിക്കുന്നതിന്റെ അവസാന ദിവസമായ ഇന്ന് താജകിസ്ഥാൻ പ്രധാനമന്ത്രി കൊഹിർ റസുൽസാദ ഉൾപ്പെടെ വിവിധ ഉന്നതല ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രപതി ചർച്ച നടത്തും ന്യൂസ്ഡെസ്ക് ആകാശവാണി

എന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സയ്യിദ് അക്ബറുദ്ദീനാണ് പൊതുസഭയുടെ സമ്മേളനത്തിൽ ഇക്കാര്യം ഉന്നയിച്ചത്

ഭീകരത കുട്ടിയേറ്റ പ്രശ്നം ഉൾപ്പെടെയുള്ള ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇത് സഹായകമാകും കാലാവസ്ഥാ വൃതിയാസ്പ്രുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുദിനം വർദ്ധിച്ച് വരികയാണെന്നു്ം ശ്രീ സയ്യിദ് അക്ബറുദ്ദീൻ പറഞ്ഞു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റേതാണ് വിധി

ക്രമപ്രകാരമേ ഹർജികൾ പരിഗണിക്കാനാവൂ എന്ന് കോടതി പറഞ്ഞു പന്തളം രാജകുടുംബം ശബരിമല തന്ത്രി കുടുംബം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ നായർ സർവ്വീസ് സൊസൈറ്റി ദേശീയ അയ്യപ്പഭക്തജന വനിതാ കൂട്ടായ്മ എന്നിവരാണ് ഇതുവരെ സുപ്രീംകോടതിയിൽ റിവ്യൂ ഹർജികൾ സമർപ്പിച്ചിട്ടുള്ളത്

ബീഹാർ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുജറാത്തിലേക്ക് കുടിയേറിയവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് കുടിയേറ്റക്കാർക്ക് ആവശ്യമായ എല്ലാ സുരക്ഷയും ഒരുക്കുമെന്ന് അദ്ദേഹം രാജ്കോട്ടിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ശ്രീ

ജില്ലാ കളക്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തി നില്ലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി സാമൂഹൃമാധൃമങ്ങളില്ലി സ്ന്ദേശങ്ങളും അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയ്ക്കാണ്

കാഴ്ച പരിമിതി ഉള്ളവർക്കായി പ്രത്യേകം തയ്യാറാക്കിയ ബ്രെയ്ലി ലിപിയിലെ വോട്ടർസ്തിപ്പുകൾ വിതരണം ചെയ്യുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനൊപ്പം സ്ഥാനാർത്ഥികൾ തങ്ങൾക്കെതിരെയുള്ള കേസുകൾ സംബന്ധിച്ച വിശദമായ സത്യവാങ്മൂലവും നൽകാനും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്

മൂന്ന് വർഷത്തെ ഗവേഷണത്തിനും ശാസ്ത്രജ്ഞരും ഉദ്യോഗസ്ഥരുമായി ദക്ഷിണകൊറിയയിൽ നടന്ന ഒരാഴ്ചത്തെ ചർച്ചയ്ക്കുമൊടുവിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്

എഫിന്റെ വിലയിരുത്തൽ യാഫ്റിർത്ഥ്യമായാൽ ലോക സാമ്പത്തിക രാഷ്ട്രങ്ങളുടെ ഇട്ടയിൽ ഇന്ത്യ ചൈനയെ മറികടക്കുമെന്ന് കരുതുന്നു ആഗ്നോള സാമ്പത്തിക സ്ഥിതിയും അസംസ്കൃത എണ്ണയുടെട്ടു വിലയും വളർച്ചാ നിരക്കിൽ പ്രതിഫലിക്കുമെന്ന സൂച്ചനയാണ് ലോക സാമ്പത്തിക അവലോകന റിപ്പോർട്ടും നൽകുന്നത്

രാജ്യ സുരക്ഷയിലും തന്ത്രപ്രധാന വിഷയങ്ങളിലും പ്രധാനമന്ത്രിക്ക് ഉപദേശം നൽകുന്ന ദേശീയ സുരക്ഷാ കൌൺസിലിനെ സഹായിക്കുകയാണ് സ്ട്രാറ്റജിക് പോളിസി ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്ന് ട്ട് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു

സുരക്ഷാ കാര്യങ്ങളിൽ തന്ത്രപരമായ അവലോകനം നടത്താൻ ദേശീയ സുരക്ഷാ കൌൺസിലിന് നയതന്ത്ര വിഭാഗം സഹായം നൽകും

ഈ മാസം മുതൽ അടുത്ത ഫെബ്രുരി വരെ ബോണ്ടുകൾ ബാങ്കുകളിലും പോസ്റ്റോഫീസുകളിലും സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷനിലും ലഭ്യമാണ്

ഡെറാഡൂണിൽ ഇന്നലെ സമാപിച്ചു സർമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രങ്ങളിൽ ഇന്ത്യ പൃത്താം സ്ഥാനത്താണ്

ഭക്ഷ്യ ഉത്പാദന മേഖലയിൽ ഉത്തരാഖണ്ഡിന് സുപ്രധാന സ്ഥാനമുണ്ടെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ഹർസിമ്രത് കൌർ അഭിപ്രായപ്പെട്ടു

ഭരണപരവും തന്ത്രപരവും സൈനികവിന്യാസവും സംബന്ധിച്ച കാര്യങ്ങൾ ഒരാഴ്ച നീളുന്ന സമ്മേളനം ചർച്ച ചെയ്യും

വനിതകളുടെ ക്ലബ് ത്രോ ഇനത്തിൽ ഏക്തബ്യാനാണ് ഇന് സ്വർണ്ണം നേടിയത്

ഇന്ത്യൻ ഓപ്പൺ പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ വർഷം കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് ഏക്തയ്ക്ക് പാരാഗെയിംസിലേക്കുള്ള വഴി ഒരുക്കിയത് ജയന്തി ബെഹ്റ ആനന്ദൻ ഗുണശേഖരൻ മോനു ഗംഗസ് എന്നിവരിലൂടെ ഇന്ത്യക്ക് ഇന്ന് മൂന്ന് വെങ്കല മെഡൽ ലഭിച്ചു

മെഡൽ ജേതാക്കളെ കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ റാത്തോഡ് ട്വീറ്ററിൽ അഭിനന്ദിച്ചു

സമാന്മായ് ലക്ഷണം കണ്ടവരുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കാനും ജില്ലയിൽ ഉടനീളം ജാഗ്രത പുലർത്താനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു

ഇതിനുപുറമെ മൂന്ന് വെള്ളി മെഡലുകളും ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്